പ്രതിപക്ഷ ബഹളം ഇരുസഭകളും ഉച്ചവരെ നിറുത്തിവെച്ചു

പ്രതിഷേധിച്ച് കേരളിനിയ്മസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്

നിർഭയ കേസിലെ പ്രതിരോധിക്കാൻ പവൻ ഗുപ്തയുടെ ദയാഹർജി തള്ളണമെന്ന് ഡൽഹി സർക്കാർ

സജ്ജമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി

അസ്ലംഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് മാറ്റിവച്ചു

വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ്സ് എം എൽ എ മാരായ അധീർ രഞ്ജൻ ചൌധരി ഗൌരവ് ഗൊഗോയ് മാണിക്ക് ടാഗോർ എന്നിവർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു

സഭാ നടപടികൾ തടസ്സപ്പെടുത്താനും ധനകാര്യ ബില്ലിനെ എതിർക്കാനുമാണ് കോൺഗ്രസ്റ്റ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ പറഞ്ഞു

അതിനിടെ സഭാ നടപടികൾ സുഗമമായി നടത്തുന്നതിന് സ്പീക്കർ ഓം ബിർള വിളിച്ച സർവ്വകക്ഷിയോഗം ഇന്ന് നടക്കും ഇന്നലെയുണ്ടായ അനിഷ്ടസംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം

ജെ

മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ഡൽഹിയിൽ ബി ജെ

പാർലമെന്റി പാർട്ടി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മാർ സംഘടനാ താൽപര്യങ്ങളല്ല മറിച്ച് രാജ്യതാൽപര്യങ്ങളാണ് മുറുകെപ്പിടിക്കേ തെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി പാർലമെന്ററികാരൃ മന്ത്രി പ്രഹ്ളാദ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞു

വിഷയത്തിൽ അടിയന്തരപ്രമേയ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പെരിയ കൊലക്കേസ് സി ബി ഐ യ്ക്ക് വിടുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ലെന്നും അതിനാലാണ് കേസിൽ സർക്കാർ രണ്ടാമത് അപ്പീൽ പോയതെന്നും മുഖ്യമന്ത്രിപ്പുറിഞ്ഞു

പവന്റെ ദയാഹർജി കേന്ദ്ര ആഭൃന്തര മന്ത്രാലയത്തിന് ലഭിച്ചതിന് പിന്നാലെയാണ് ഡൽഹി സർക്കാർ ശൂപാർശ നൽകിയത് ശൂപാർശ ഡൽഹി സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറുടെ പരിഗണനയ്ക്ക് വേണ്ടി കൈമാറി ഇന്നലെയാണ് പവൻ ഗുപ്തയുടെ ദയാഹർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കും തീരുമാനത്തിനുമായി സമർപ്പിച്ചത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നാലുപ്രതികളുടേയും വധശിക്ഷ നടപ്പാക്കരുതെന്ന് ഡൽഹി ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു ഇന്ന് രാവിലെയായിരുന്നു ശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത്

എന്നാൽ ട്വീറ്റ് വന്ന് നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രിയോട്ട് തീരുമാനം പിൻവലിക്കണമെന്ന് നിരവധി പേർ അഭ്യർത്ഥിച്ചു തുടങ്ങി

സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവുമധികം പേർ പിന്തുടരുന്ന ലോകനേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പൂഞ്ചിലെ അതിർത്തി പ്രദേശങ്ങളായ മാൻകോട്ട് മെഹന്ദർ മേഖ്ലിയിലെ നിയന്ത്രണ രേഖയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണമെന്ന് പ്രതിരോധ വക്താവ് ആകാശവാണിയോട് ഫ്ട്രിഞ്ഞു

ആളപായമില്ല

ജനങ്ങൾ പരിഭ്രാന്തരാകേതില്ലെന്നും മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ടു പോയാൽ മതിയെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ പറഞ്ഞു ഇറാൻ ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ പ്രകാശ്

തെലങ്കാനയിൽ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തയാൾ ദുബായിയിൽ നിന്നെത്തിയുതാണ്

ഇറ്റലി ഇറാൻ എന്നിവിടങ്ങളിൽ നിങ്ങെത്തുന്ന യാത്രക്കാർ തെർമൽ സ്കാനിംഗിന് വിധേയരാകണമെന്ന് വ്യോമയാന മന്ത്രാലയവും അറിയിച്ചു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇപ്പ്പ്പ്ർഷത്തെ മത്സരത്തിൽ ഇന്ത്യ പങ്കെടുക്കാൻ സാധ്യത്യില്ല

ക്രമക്കേട് നടന്നതായി തെളിയിക്കുന്ന നിരവധി രേഖകൾ റെയ്ഡിൽ പിടിച്ചെടുത്തു ഇവ കൂടുതൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാക്കും

കുപ്വാരയിലെ മുൻ ജില്ലാ മജിസ്ട്രേട്ടുമാരായ രാജീവ് രഞ്ജനേയും ഇത്രിത് ഹുസൈൻ റാഫിഖിയേയുമാണ് കഴിഞ്ഞ ഞായറാഴ്ച കസ്റ്റഡിയിലെടുത്തത്

കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തീരുമാനമാണിതെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ട്വിറ്ററിൽ കുറിച്ചു

ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുന്നത് സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിക്കും രോഗബാധ മൂന്നു മാസത്തിനകം നിയന്ത്രിക്കാനായാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ തീവ്രത ലഘൂകരിക്കാനാകുമെന്ന് ധനമന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു

ഹോളിയുടെ തനത് ഭാവങ്ങളായ ലഡൂഹോളി ലത്മർ ഹോളി ചാഡി ഹോളി ഫൂലോംകി ഹോളി എന്നിവ ഓരോ ദിവസവും ആചാരങ്ങളുടെ ഭാഗമായി ബ്രാജ് പ്രദേശത്ത് നടക്കും

രാത്രി ഏഴിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം